ശാക്തീകരണത്തിന് സ്വയംസഹായ സംഘങ്ങൾ നിർണ്ണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇറാനുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചരൃത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശൃങ്ങൾ പരിരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളുമെന്ന് വിദേശകാര്യ മന്ത്രാലയം

മത്സരത്തിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക്

ചെറുകിട സംരംഭകരെയും തൊഴിലാളികളെയുമാണ് ഇത്തരം സംഘങ്ങൾ സഹായിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ സാമ്പത്തിക പുരോഗതിയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയംസഹായ സംഘങ്ങൾ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീകൾ തങ്ങളുടെ ശക്തിയേയ്ക്ക് വൈദഗ്ധ്യങ്ങളെയും സംബന്ധിച്ച് അവബോധം ഉള്ളവരായിൽ മാത്രമേ രാജ്യത്ത് സ്ത്രീശാക്തീകരണം സാധ്യമാക്ട് എന്നും ശ്രീ

എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും പുതിയ മന്ദിരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്

ഇടിമിന്നലിനെ ചെറുക്കാനും മഴവെള്ള സംഭരണത്തിന് സൌകര്യമുള്ളതുമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനുശേഷം പ്രധാനമന്ത്രി മന്ദിരം നോക്കിക്കണ്ടു നമ്മുടെ മഹത്തായ പൈതൃകം ഓരോ പൌരനും തിരിച്ചറിയണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അതിർത്തി മേഖലാ പ്രിദ്ദേൾട്തെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയൂള്ള് ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നട്ടത്തുകയായിരുന്നു അദ്ദേഹം

മാതൃകാ ഗ്രാമപദ്ധതിയിൽ പ്രാഥമിക ആരോഗൃകേന്ദ്രം പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വാർത്താ വിതരണ സംവിധാനങ്ങൾ കുടിവെള്ള തുടങ്ങിയവ ഉറപ്പാക്കുമെന്നും അറിയിച്ചു

കടുത്ത മാനസിക പിരിമുറക്കത്തിന്റെ ഫലമായി ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് ആരോഗ്യപ്രശ്നങ്ങൾ കൂടുതലാണെന്നും കോടതി നിരീക്ഷിച്ചു ലൈംഗിക അഭിരുചികളുടെ അടിസ്ഥാനത്തിൽ ഒരാളെയും വേർതിരിച്ചുനിർത്താൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്നും കോടതി വൃക്തമാക്കി

ജെ പി ജെ

യു സഖ്യത്തിന് വിള്ളൽ വരുത്താനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം വിജയിക്കില്ലെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പട്നയിൽ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വസ്വാനി പൂനൈയിൽ അന്തരിച്ചു

സസ്യഭോജന സമ്പ്രദായവും മൃഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനാലാണ് അദ്ദേഹം ലോകശ്രദ്ധ നേടിയത്

എസിന്റെ യു താന്റ് സമാധാന അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു

ജെ

ആരോഗ്യപരമായ രാഷ്ട്രട്ടീയ് നീക്കത്തിന്റെ സൂചനകളല്ല ഇത്തരം പ്രസ്താവനകളെന്ന് പാർട്ടി വക്താവ് സംബിത്ത് പത്ര വാർത്താലേഖകരോട് പറഞ്ഞു ഇത്തരം പ്രസ്താവനകൾ ജനാധിപത്യ ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണെന്നും ചില വിഭാഗം ജനതയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്നും പത്ര ആരോപിച്ചു

പിയ്ക്കെതിരായ ശശി തരൂരിന്റെ പ്രസ്താവനയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വിട്ടു നിന്നു

രാജ്യത്തിന്റെ മഹത്തായ മൂലൃങ്ങളും അടിസ്ഥാന തത്വങ്ങളും ഉൾക്കൊണ്ട് വേണം പാർട്ടി നേതാക്കൾ പ്രസ്താവന നടത്തേണ്ടതെന്നും സുർജെവാല പറഞ്ഞു

ജെ പിയുടെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും അടിസ്ഥാന തത്വങ്ങൾ മറക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

ഞായറാഴ്ച ലൂഷ്നിക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപോരാട്ടത്തിൽ ഫ്രാൻസ് ക്രൊയേഷ്യയെ നേരിടും

ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു

രാജ്യത്തിന്റെ ഊർജ്ജ ആവശൃങ്ങൾ നിറവ്വെറ്റുന്നതിൽ ഇറാൻ സൂപ്രധാന പങ്കാളിയാണെന്ന് വിദ്ദേശ്ശകാര്യ വക്താവ് രാവീഷ് കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു് വിവാദ മത പ്രഭാഷകൻ സാഖീർ നായികിനെ മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും വിദേശകാര്യവക്താവ് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

ഉള്ളടക്കത്തിനനുസരിച്ച് ഇന്റർനെറ്റ് വേഗതയിൽ സേവനദാതാക്കൾ വ്യതിയാനം വരുത്തുന്നത് തടയുന്നത് ലക്ഷ്യമിട്ടാണ് നെറ്റ ന്യൂട്രാലിറ്റി നിയമങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത് ടെലികോം കമ്മീഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് ന്യൂട്രാലിറ്റി നിയമങ്ങൾക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചത് എന്നാൽ തന്ത്രപ്രധാന സേവനങ്ങളായ ഡ്രൈവർ രഹിത കാറുകൾ റിമോർട്ട് സർജറി എന്നിവ നെറ്റ് ന്യൂട്രാലിറ്റിയുടെ പരിധിയ്ക്ക് പുറത്തായിരിക്കുമെന്ന് ടെലികോം കമ്മീഷൻ ചെയർമാൻ അരുണാ സുന്ദർ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു

എസ് വേഗതയിലുള്ള ബ്രോഡ്ബാന്റ് സൌകര്യം എന്നിവ ഉറപ്പാക്കാനാണ് ഈ പൂതിയു നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്